ത കോവിഡ് സാമൂഹ്യ വ്യാപനം പരിശോധിക്കാൻ ദ്രുത ആന്റിബോഡി പരിശോധന ഇന്നുമുതൽ

വാർത്തകൾ വിശദമായി കോവിഡ് ലോക്ഡൌണിനെത്തുടർന്ന് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്ന ഗവൺമെന്റ് ഓഫീസുകളും പൊതുമേഖലാ സ്ഥാപനങ്ങളും അർദ്ധ ഗവൺമെന്റ് സഹകരണ സ്ഥാപനങ്ങളും ഇന്ന് പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കും കണ്ടെയ്മെന്റ് സോണുകളിലൊഴികെ എല്ലാ ജീവനക്കാരും ഇന്നുമുതൽ ഓഫീസിലെത്തണമെന്ന് ഗവൺമെന്റ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശനിയാഴ്ചകളിലെ അവധി തുടരും രാജ്യത്തെ ആരാധനാലയങ്ങളും ഷോപ്പിംഗ് മാളുകളും റസ്റ്റന്റുകളും ഇന്നുമുതൽ തുറക്കാൻ അനുമതി നൽകിയിട്ടുണ്ടെങ്കിലും സംസ്ഥാനത്ത് നാളെ മുതലായിരിക്കും ഇവയുടെ പ്രവർത്തനം തുടങ്ങുന്നത് ഇത്തരം സ്ഥലങ്ങൾ ഇന്ന് ശുചീകരിച്ചശേഷം നാളെ മുതൽ തുറക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് നിർദ്ദേശം നൽകിയത് രുര സംസ്ഥാനത്ത് കോവിഡ് സാമൂഹ്യ വ്യാപനം ഉണ്ടോ എന്ന് പരിശോധിക്കാൻ ദ്രുത ആന്റിബോഡി പരിശോധന ഇന്ന് ആരംഭിക്കും ആരോഗ്യ പ്രവർത്തകർ പൊലീസുകാർ പൊതു പ്രവർത്തകർ ഗവൺമെന്റ് ജീവനക്കാർ അതിഥി തൊഴിലാളികൾ എന്നിവരടക്കം സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽപെട്ടവരെ പരിശോധനാ വിധേയരാക്കും

രുര കോവിഡ് പ്രതിരോധത്തിന് മുൻനിരയിൽ പ്രവർത്തിക്കുന്ന ശുചീകരണ തൊഴിലാളികളെ പൊലീസും സ്റ്റുഡന്റ് പൊലീസ് കേഡറ്റുകളും സംസ്ഥാന വ്യാപകമായി ഇന്ന് ആദരിക്കും സാദരം എന്ന പരിപാടിയിൽ ശുചീകരണ തൊഴിലാളികൾക്ക് മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യും കോവിഡ് പ്രതിരോധ മാർഗ്ഗ നിർദ്ദേശങ്ങൾ പാലിച്ചായിരിക്കും പരിപാടിയെന്ന് ഡി ജി പി ലോക്നാഥ് ബെഹ്റ അറിയിച്ചു

വിശദാംശങ്ങളുമായി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്

തൃശൂർ ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത് കണക്കിലെടുത്താണ് നടപടി

വിശദാംശങ്ങൾ നൽകുന്നത് കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ

വ്യവസ്ഥകൾ പാലിക്കാൻ കഴിയാത്ത പ്രദേശങ്ങളിലെ പള്ളികളിൽ ഇപ്പോഴത്തെ നില തുടരാവുന്നതാണെന്നും നേതാക്കൾ അറിയിച്ചു നഗരപ്രദേശങ്ങളിലെയും വശങ്ങളിലെയും പള്ളികൾ തുറക്കില്ലെന്ന് കേരള മുസ്ലിം ജമാഅത്ത് ഫെഡറേഷൻ അറിയിച്ചു ഗ്രാമങ്ങളിലെ പള്ളികൾ നിർദ്ദേശങ്ങൾ പാലിച്ച് ആരാധനയ്ക്ക് തുറന്ന് നൽകുമെന്ന് സംഘടന കൊല്ലത്ത് അറിയിച്ചു രുര ക്ഷേത്രങ്ങൾ നാളെ മുതൽ ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്ന തീരുമാനത്തിൽനിന്ന് ഗവൺമെന്റ് പിന്തിരിയണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതി ആവശ്യപ്പെട്ടു ഇതുവഴി സാമൂഹിക വ്യാപനം വർദ്ധിക്കാനും രോഗ പ്രതിരോധ ശ്രമങ്ങൾ പരാജയപ്പെടാനും ഇടയാകുമെന്ന് സമിതി സെക്രട്ടറി കെ

കോഴിക്കോട് തളി ശ്രീ മഹാഗണപതി ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ തൽക്കാലം ദർശനം ഉണ്ടാവില്ലെന്ന് കമ്മിറ്റി അറിയിച്ചു ദേശ ദേവാലയങ്ങൾ തുറക്കാനും തിരുക്കർമ്മങ്ങൾ നടത്താനും അനുമതി ഉണ്ടെങ്കിലും ഓരോ ഇടവകയുടെയും സ്ഥലത്തിന്റെയും സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് അജപാലക സമിതിയോട് ആലോചിച്ച് തീരുമാനമെടുക്കണമെന്ന് കോഴിക്കോട് ബിഷപ്പ് ഡോ വർഗീസ് ചക്കാലക്കൽ ഇടവക വികാരിമാർക്ക് നിർദ്ദേശം നൽകി ഗവൺമെന്റ് മാർഗ്ഗ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സാധിക്കാത്ത ദേവാലയങ്ങൾക്ക് തുറക്കുന്ന തീയതി മാറ്റിവെയ്ക്കാവുന്നതാണെന്നും ബിഷപ്പ് പറഞ്ഞു രുമ മലപ്പുറം ജില്ലയിലെ പള്ളികൾ തൽക്കാലം പ്രാർത്ഥനയ്ക്കായി തുറക്കേണ്ടതില്ലെന്ന് ജില്ലാ മുസ്ലിം കോ ഓഡിനേഷൻ കമ്മിറ്റി തീരുമാനിച്ചു സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയ ശേഷമാണ് തീരുമാനമെന്ന് കമ്മിറ്റി ചെയർമാൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അറിയിച്ചു

മുഖാവരണങ്ങൾ ധരിക്കണമെന്നും പൊതു സ്ഥലങ്ങളിൽ ആറടിയെങ്കിലും സാമൂഹിക അകലം പാലിക്കണമെന്നും നേരത്തെതന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

രോഗലക്ഷണങ്ങളില്ലാത്ത ജീവനക്കാരെയും സന്ദർശകരെയും മാത്രമേ ഓഫീസുകളിൽ പ്രവേശിപ്പിക്കാവൂ എന്നും കർശന നിർദ്ദേശമുണ്ട്

ഐ

ജെ പി പ്രവർത്തകർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായി അണിചേരണമെന്ന് കേന്ദ്രമന്ത്രി അമിത് ഷാ ആഹ്വാനം ചെയ്തു പാർട്ടിയുടെ ആദ്യ വെചർച്വൽ റാലി ബീഹാർ ജൻ സംവാദിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തെരഞ്ഞെടുപ്പോ രാഷ്ട്രീയമോ മുന്നിൽ കണ്ടല്ല റാലി എന്ന് അമിത് ഷാ വ്യക്തമാക്കി

ജെ പി സംഘടിപ്പിക്കുന്നത്

സമുദ്രങ്ങളെ സംരക്ഷിക്കാനും അമിക ചൂഷണം ഒഴിവാക്കി കടൽ വിഭവങ്ങൾ യുക്തിപൂർവ്വം പ്രയോജനപ്പെടുത്താനും ലക്ഷ്യമിട്ടാണ് ദിനാചരണം കടലിനും കരുതൽ വേണമെന്ന സന്ദേശത്തോടെയാണ് ഇത്തവണത്തെ സമുദ്ര ദിനം സംഘടിപ്പിക്കുന്നത് കേരളത്തിൽ നാളെ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും

പരമ്പരാഗത മീൻപിടുത്ത യാനങ്ങൾക്ക് നിയന്ത്രണങ്ങൾ പാലിച്ച് മീൻപിടിക്കാവുന്നതാണ് രുമ വന്യമൃഗ ശല്യം പരിഹരിയ്ക്കാൻ എല്ലാ മുൻകരുതലുകളും മാർഗ്ഗങ്ങളും സ്വീകരിക്കുമെന്ന് മന്ത്രി ടി

കോഴിക്കോട് ജില്ലയിലെ ചെമ്പനോട ഭാഗത്ത് വന്യജീവി ശല്യം നേരിടാൻ ദ്രുതപ്രതികരണ സംഘത്തെ നിയോഗിക്കുമെന്നും പെരുവണ്ണാമൂഴി വനംവകുപ്പ് ഓഫീസ് സന്ദർശനവേളയിൽ മന്ത്രി പറഞ്ഞു

വിജയകുമാർ സിംഗ് അറിയിച്ചതായി എൻ കെ പ്രേമചന്ദ്രൻ എം

രുമ സ്കൂൾ പ്രവേശന നടപടികൾ ഓൺലൈൻ സംവിധാനത്തിലൂടെയും നടത്താൻ ഗവൺമെന്റ് ഉത്തരവ് പുറപ്പെടുവിച്ചു

സി വാങ്ങാനും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാം നേരിട്ടും അപേക്ഷ നൽകാവുന്നതാണ്

മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട് രുര ഇടുക്കി കല്ലാർ സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ചിത്തിരപുരത്ത് മൂന്നേക്കർ ഭൂമിയിലെ കൃഷിയിറക്കൽ മന്ത്രി എം

സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി സ്വകാര്യ വ്യക്തിയുടെ ഭൂമി പാട്ടത്തിനെടുത്താണ് കൃഷി നടത്തുന്നത് അടിമാലി എസ് എൻ

പി സ്കൂൾ വിദ്യാർത്ഥികൾ ആനവിരട്ടി പാടശേഖരത്തിൽ വിളയിച്ച നെല്ല് സഫല എന്ന പേരിൽ അരിയാക്കി വിപണനം ആരംഭിച്ചു